രണ്ട് മാസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ ജനങ്ങൾക്ക് ന് ലഭ്യമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ മരിച്ചവരുടെ കുട്ടികൾക്ക് എം

കോവിഡ് അതി രൂക്ഷമായി നിലനിന്നിരുന്നപ്പോൾ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും സഹായമെത്തിക്കാൻ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു

ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാനായത് സാങ്കേതികവിദ്യയിലൂടെ ആണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അന്ത്യാർാഷ്ട്ര സൌര സഖ്യത്തിൽ ചേരാനുള്ള ലക്സംബർഗ് തീരുമാനിത്ത് സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറഞ്ഞു െ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി അടുത്തിടെ ലിക്ട്സംബർഗിന്റെ നാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് സന്തോഷമൂണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ മേഖലയിലും സാമ്പത്തിക് മേഖലയിലും ഇന്ത്യയും ലക്സംബർഗ് തമ്മിൽ ഏർപ്പെട്ട കരാറുകൾ സ്വാഗതം ചെയ്യുന്നതായി ലക്സംബർഗ് പ്രധാനമന്ത്രി സേവിയർ ബെറ്റേൽ പറഞ്ഞു

ഒരു ട്രക്കിൽ കശ്മീർ താഴ്വര ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരുന്ന ഭീകരർ ടോൾപ്ലാസക്ക് സമീപം പരിശോധനയ്ക്കിടയിൽ സുരക്ഷാ സേനക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു

രോഗമുക്തി നിരക്കിൽ വർധന തുടരുകയാണ്

ഡൽഹിയിലും സമീപപ്രദേശങ്ങളായ ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലും പ്രതിദിന കോവിഡ് കേസുകൾ വർധിച്ചുവരികയാണ് കോവിഡ് കേസുകൾ അധികമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു കേന്ദ്രസംഘം രോഗനിർണയം പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും

വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബി

മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ചലച്ചിത്ര സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ തീരുമാനം നീട്ടിവയ്ക്കുന്നതാകും നല്ലതെന്ന നിർദേശത്തോട് ചലച്ചിത്ര സംഘടനകൾ യോജിച്ചു

ബാലൻ ഫിലിം ചേംബർ ഫിയോക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും യോഗത്തിൽ പങ്കെടുത്തു തീയറ്ററുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ അനുമതിയായെങ്കിലും സംസ്ഥാനത്ത് അടച്ചിടൽ തുടരുകയായിരുന്നു

സൌദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിലാണ് ഈ വർഷത്തെ ഉച്ചകോടി യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഇന്ത്യ സൌദി ഉൾപ്പെടെ ലോകത്തിലെ വൻ ശക്തികളായ അറേബ്യ ഇരുപത് രാജ്യങ്ങളാണ് ഉച്ചകോടിയിലെ അംഗങ്ങൾ